കേന്ദ്ര ബജറ്റ് അടുത്തമാസം ഒന്നിന്

വാർത്തകൾ വിശദമായി അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് രാവിലെ ഒൻപതിന് നിയമസഭയിൽ അവതരിപ്പിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ അവസാന ബജറ്റായതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ ഇളവുകളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിക്കുന്ന പന്ത്രണ്ടാമത്തെ ബജറ്റാണിത്

ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്യുന്നതോടെയാണ് സമ്മേളനം ആരംഭിക്കുക കേന്ദ്ര ബജറ്റ് അടുത്തമാസം ഒന്നിന് ധനമന്ത്രി നിർമല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും

ഏപ്രിൽ എട്ടു വരെയാണ് സമ്മേളനം ദര റിപ്പബ്ലിക്ദിന ആഘോഷ ചടങ്ങിൽ ഈവർഷം വിദേശ രാഷ്ട്രത്തലവന്മാരെ മുഖ്യ അതിഥിയായി പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായി ഗവൺമെന്റ് അറിയിച്ചു ആഗോള കോവിഡ് സ്ഥിതി കണക്കിലെടുത്താണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ ന്യൂഡൽഹിയിൽ അറിയിച്ചു റിപ്പബ്ലിക് ദിന പരേഡിൽ ബംഗ്ലാദേശിൽ നിന്നും മൂന്ന് സായുധസേനകളും പങ്കെടുക്കുന്നുണ്ട് ദേദ ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് വാക്സിനേഷൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യും ഇതോടെ രാജ്യത്ത് എല്ലായിടത്തും കോവിഡ് വാക്സിൻ നൽകിത്തുടങ്ങും സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മൂവായിരത്തിലധികം കേന്ദ്രങ്ങളിലാണ് വാക്സിനുകൾ നൽകുന്നത് ഓരോ കേന്ദ്രത്തിലും നാളെ നൂറോളം പേർക്കാണ് വാക്സിൻ നൽകുക

കോവിഷീൽഡ് കോവാക്സിൻ വാക്സിനുകൾ ഇതിനകം രാജ്യത്ത് എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്

സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ശാസ്ത്രജ്ഞരെയും ഡോക്ടർമാരെയും ശാസ്ത്ര സമൂഹത്തെയും അപകീർത്തിപ്പെടുത്തി വാക്സിനേഷൻ രാഷ്ട്രീയവൽക്കരിക്കാൻ നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തുന്ന പ്രചാരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണമെന്ന് അവർ ആവശ്യപ്പെട്ടു ദര മലപ്പുറം ജില്ലയിലെ ഒമ്പത് കേന്ദ്രങ്ങളിലാണ് നാളെ വാക്സിൻ വിതരണം ആരംഭിക്കുക

മറ്റ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് രോഗബാധിതർ

മറ്റന്നാൾ തുടങ്ങാനിരുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കുന്നത് കണക്കിലെടുത്താണ് മാറ്റിവെച്ചത് ദേദ പ്രധാൻമന്ത്രി കൌശൽ വികാസ് യോജനയുടെ മൂന്നാം ഘട്ടത്തിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും

എട്ടുലക്ഷത്തിലേറെ പേർക്ക് നടപ്പു സാമ്പത്തിക വർഷം പരിശീലനം നൽകാനാണ് സ്കിൽ ഇന്ത്യാ മിഷൻ പ്രധാൻമന്ത്രി കൌശൽ വികാസ് യോജന മൂന്നാംഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്

ടി ഐകളും ഇതിൽ പങ്കാളികളാകും

ദേദ സമരം ചെയ്യുന്ന കർഷക സംഘടനാ നേതാക്കളുമായി കേന്ദ്രം ഇന്ന് വീണ്ടും ചർച്ച നടത്തും

തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രിസംഗ് തോമർ ഡൽഹിയിൽ പറഞ്ഞു പ്രശ്ന പരിഹാരത്തിന് കേന്ദ്രവും കർഷക സംഘടനകളും തമ്മിൽ ഒമ്പതാം തവണയാണ് ചർച്ച നടത്തുന്നത് ദേഴ ശരണംവിളിയുടെ ആരവങ്ങൾക്കിടെ ആയിരങ്ങൾക്ക് ദർശന പുണ്യമേകി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു വൈകിട്ട് അയ്യപ്പന് തിരുവാഭരണം ചാർത്തി ദീപാരാധന കഴിഞ്ഞതോടെ ആകാശത്ത് മകരജ്യോതിയും പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും ദർശിച്ച് ആയിരങ്ങൾ മലയിറങ്ങി

കോവിഡ് സാഹചര്യത്തിൽ കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ഇത്തവണ മകരവിളക്ക് ദർശനം

സന്നിധാനത്തു നിന്ന് മാത്രമേ ഇക്കുറി ജ്യോതി ദർശിക്കാൻ അനുമതിയുണ്ടായിരുന്നുള്ളു

ശബരിമലയെ സഹായിക്കാൻ ഭക്തരുടെ സഹകരണം ആവശ്യമാണെന്നും സന്നിധാനത്ത് മന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

നാല് ടെസ്റ്റുകളടങ്ങിയ പരമ്പരയിൽ ഓരോന്ന് ജയിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും സമനിലയിലായതിനാൽ ഈ ടെസ്റ്റ് ഇരു ടീമുകൾക്കും നിർണായകമാണ് ദര ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം

ജംഷഡ്പൂർ പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ്

ദേദ കോട്ടയം ജില്ലയിൽ പക്ഷിപ്പനി പൂർണമായും നിയന്ത്രണ വിധേയമായെന്ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു

പ്രദേശത്തെ ഫാമുകളിലെല്ലാം അണുനശീകരണം നടത്തി ഇവിടെ മൂന്നു മാസം കൂടി ജാഗ്രത തുടരുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഷാജി പണിക്കശേരി അറിയിച്ചു ദ്ദേ തലമുറകളായി തോട്ടം ലയങ്ങളിലെ ഒറ്റമുറിയിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം തോട്ടം തൊഴിലാളികൾക്ക് സ്വന്തമായി വീട് ഒരുക്കാൻ തൊഴിൽ വകുപ്പ് ഓൺ യുവർ ഓൺ ഹൌസ് ഭവന പദ്ധതി നടപ്പാക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

പൊലീസ് മർദ്ദനമാണ് മരണ കാരണമെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി

ദര റിമാൻഡ് പ്രതിയായ ഷഫീഖ് കോട്ടയം മെഡിക്കൽ കോളജിൽ മരിക്കാനിടയായ സംഭവത്തിൽ വസ്തുതകൾ പുറത്ത് കൊണ്ടുവരാൻ ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു